അമിത്ഷാ കൊറോണ പ്രതിരോധ നടപടികൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയത്തിൽ ആരംഭിച്ച കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങൾ ശ്രീ അമിത് ഷാ യുടെ അദ്ധ്യക്ഷതയിൽ ചേർന്ന് യോഗത്തിൽ വിലയിരുത്തി വിവിധ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥരുമായി ആഭ്യന്തരമന്ത്രി ചർച്ച ചെയ്തു

ഗ്രീൻ സോണിലായ കോട്ടയം ഇടുക്കി ജില്ലകൾ മറ്റന്നാൽ മുതൽ സജീവമാകും

റെഡ് സോണിലുള്ള കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മെയ് മൂന്ന് വരെ ലോക്ക്ഡൌൺ പൂർണ്ണമായും തുടരും ഇളവ് ലഭിച്ച മേഖലകളിൽ മറ്റന്നാൾ മുതൽ ഗവൺമെന്റ് ഓഫീസുകൾ പ്രവർത്തിച്ചു തുടങ്ങും

ബാങ്കുകളുടെ പ്രവർത്തന സമയം റെഡ് സോൺ ഒഴികെയുള്ള ജില്ലകളിൽ രാവിലെ പത്ത് മണിമുതൽ നാല് മണിവരെ ആയിരിക്കും പൂർണ്ണമായ അടച്ചിടൽ പ്രഖ്യാപിച്ച റെഡ് സോണിലുള്ള ജില്ലകളിൽ ഒഴികെ വാണിജ്യ സ്ഥകാര്യ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം

കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഏറ്റവും കുറവ് നിയന്ത്രണങ്ങൾ ഈ രണ്ട് ജില്ലകളിലും ചൊവ്വാഴ്ച മുതൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തുറക്കാൻ അനുവദിക്കും

മെയ് മൂന്നിന് ശേഷം പൊതുഗതാഗതം അനുവദിക്കുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമുണ്ടാകും ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഗൾഫ് രാജ്യങ്ങളിലും വൈറസ് ബാധ പടരുകയാണ്

എട്ട് മരണം റിപ്പോർട്ട് ചെയ്തു

ആയിരത്തിനോട് അടുക്കുകയാണ്

ബാലൻ പാലക്കാട് പാലക്കാട് ജില്ലയിലെ ആദിവാസി മേഖലകളിലെ കോവിഡ് പ്രതിരോധ നടപടികൾ മന്ത്രി എ കെ ബാലന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി ഈ മേഖലകളിൽ ഇതുവരെ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു

ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ നൽകുന്ന റിപ്പോർട്ട്

പുതുതായി ർർമ്മ് റിപ്പോർട്ട് ചെയ്ത വടകര ഏറാമലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി്

നാളെയും മറ്റന്നാളും അന്ത്യോദയ മഞ്ഞക്കാർഡുകാർക്കും മുതൽ മുൻഗണനാ പിങ്ക് കാർഡുകാർക്കും സൌജന്യ റേഷൻ വിതരണം ആരംഭിക്കും കാർഡ് നമ്പറിന്റെ അവസാന അക്കം കണക്കാക്കിയായിരിക്കും റേഷൻ വിതരണം

മുൻഗണനാ വിഭാഗക്കാർക്കാണ് കിറ്റുകൾ നൽകുന്നത്

ഇന്ത്യ ഗവൺമെന്റിന്റെ നപടിക്ക് യു എ ഇ നന്ദി അറിയിച്ചു

ജൂൺ ഒന്നു മുതൽ അന്താരാഷ്ട്ര വിമാനസർവ്വീസ് ആരംഭിക്കുന്നതിന് ടിക്കറ്റ് ബുക്കിംഗ്ക് ആരംഭിക്കുകയാണെന്ന് ഇന്നലെ എയർ ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു ഈതിനു പിന്നാലെയാണ് സർക്കാർ വിശദീകരണം വന്നത്

ഇക്കാര്യത്തിൽ ്ത്രീരുമാനമെടുത്ത ശേഷമേ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കാവു എന്ന് വീമാന കമ്പനികൾക്ക് വ്യോമയാന മന്ത്രി നിർദ്ദേശം നൽകി പ വയനാട് ഇൻട്രോ ലോക് ഡൌണിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട് ഒരു വയനാടൻ ഗ്രാമം താമസം കേരളത്തിലാണെങ്കിലും തമിഴ്നാടൻ പാത പൂർണ്ണമായും അടച്ചതോടെ അത്യാവശ്യകാര്യങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് നെൻമേനി പഞ്ചായത്തിലെ മാങ്ങാച്ചാൽ പാറക്കുഴിപ്പ് പ്രദേശത്തെ അൻപതോളം കുടുംബങ്ങൾ

ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ പാവയ്ക്കയും പയറും ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ പുതുമ നഷ്ടപ്പെടാതെ സംസ്ഥാനത്തിന്റെട് വിവിധ ഭാഗങ്ങളിലെ വിപണികളിൽ ് എത്തുന്നു ആഴ്ച്ചയിൽ രണ്ട് തവണയായി അഞ്ച് ടൺ ജൈവോൽപ്പന്നങ്ങളാണ് കനകപ്പുഴയിൽ നിന്നും കയറ്റിവിടുന്നത്

വിവിധ കേന്ദ്ര പദ്ധതികളുടെ കീഴിൽ നടത്തുന്ന പ്രവൃത്തികൾക്ക് എല്ലാ സുരക്ഷാ മുൻകരുതലുകളും ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു വനിതാ സ്ഥയം സഹായസംഘങ്ങൾ സുരക്ഷയ്ക്കായുള്ള മുഖാവരണങ്ങൾ സാനിറ്റൈസറുകൾ സോപ്പുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനെയും നിരവധി സമൂഹ അടുക്കളകൾ നടത്തുന്നതിനെയും കേന്ദ്ര മന്ത്രി അഭിനന്ദിച്ചു കോവിഡ് പകർച്ച വ്യാധിയുടെ വ്യാപനം ഉയർത്തുന്ന വെല്ലുവിളി വളരെ ഗൌരവമേറിയതാണ് എന്ന് ശ്രീ

ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർധിപ്പിക്കുന്നതിനും ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഇത് ഒരു അവസരമായി കണക്കാക്കണം

ഒരാഴ്ചക്കകം പരീക്ഷകൾ തീർക്കാൻ കഴിയണം മൂല്യനീർണ്ണയം നാളെ ആരംഭിക്കാനും നിർദ്ദേശമുണ്ട് പരീക്ഷകളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി വിവരം നൽകണം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ച സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കണം പരീക്ഷ